ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി നാലുദിവസം മാത്രം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിവസം നാളെ കേരളത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തെ മനുഷ്യ നിർമ്മി തമെന്ന് പ്രചരിപ്പിക്കുന്നത് ദുഷ്ടശക്തികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി

ഐ എം പാർല മെന്റിലെ ഏറ്റവും ദുർബ്ബലമായ പാർട്ടിയായി മാറുമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസ്ഥാന ഗവൺമെന്റ് പൊലീസ് സേനയെ മാർക്സിസ്റ്റ്വൽക്ക രിച്ചതായി മുൻ ഡി ജി പി ടി പി സെൻകുമാർ വയനാട് ഒഴികെ ജില്ലകളിൽ ഇന്നും നാളെയും താപനില മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

ഈ മണ്ഡലങ്ങളിലെ തെരഞ്ഞെ ടുപ്പ് പരസ്യ പ്രചാരണം മറ്റന്നാൾ സമാപിക്കും

ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണവും അന്തിമ ഘട്ടത്തി ലെത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരടക്കം നേതാക്കൾ വിവിധ സ്ഥലങ്ങളിലെ റാലികളിൽ പങ്കെടുത്തുവരികയാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിവസം നാളെയാണ്

കേരളത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തെ മനുഷ്യ നിർമ്മിതമെന്ന് പ്രചരിപ്പിക്കുന്നത് ചില ദുഷ്ട ശക്തികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി നദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ വെള്ളം ഒഴുകിയെ ത്തിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് യു

ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ചാൽ മോദി ഭരണം അവസാനിപ്പിക്കാനാകുമെന്ന് സി

എം പൊളിറ്റ്ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു ഉത്തർപ്പ്രദേശിലെ ഉപ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുണ്ടായ പരാജയം ഇതിന് തെളി വാണെന്ന് അദ്ദേഹം മലപ്പുറം വെങ്ങാട് പറഞ്ഞു എന്നാൽ മതേ തര കൂട്ടായ്മയ്ക്ക് തുരങ്കം വെയ്ക്കുന്ന നിലപാടാണ് കോൺഗ്ര സ്സിന്റേതെന്ന് രാമചന്ദ്രൻ പിള്ള കുറ്റപ്പെടുത്തി ദേശീയതലത്തിൽ മതേതര് ്നിര കെട്ടിപ്പടുക്കുന്നതിൽ കോൺഗ്രസ്സിന്റേത് അപക്വമായ നിലപാടാണെന്ന് പൊളിറ്റ്ബ്യൂറോ അംഗം എം

ഉത്തർപ്രദേശും ഡൽഹി യുമടക്കം സംസ്ഥാനങ്ങളിൽ മതേതര വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം വയനാട് പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദി പ്രസ്സിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുശേഷം പാർലമെന്റിലെ ഏറ്റവും ദുർബ്ബലമായ പാർട്ടിയായി സി

എം മാറുമെന്ന് കെ

സി

ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം വയനാട്ടിലെ പ്രചാരണ പരിപാടികളിൽ പറഞ്ഞു

തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് എൻ

എ സ്ഥാനാർഥി സുരേഷ് ഗോപിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ ടി

ഒറ്റ പ്പാലത്ത് എൽ

എഫ് സ്ഥാനാർഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തവരുടെ സ്കൂട്ടറിൽ നിന്ന് വാൾ വീണ സംഭവത്തിൽ യു ഡി എഫ് പാലക്കാട് മണ്ഡലം തെരെഞ്ഞെടുപ്പ് കമ്മറ്റി പരാതി നൽകി ആയുധം കൊണ്ടു നടന്നവർക്കെതിരെ കേസെടു ക്കണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണ മെന്നാവശ്യ പ്പെട്ടുമാണ് ജില്ലാ പൊലീസ് മേധാവി ജില്ലാ കലക്ടർ സംസ്ഥാന മുഖ്യ തെരെഞ്ഞെടുപ്പ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് പൊലീസ് സേനയെ മാർക്സിസ്റ്റ്വൽക്കരിച്ചതായി മുൻ ഡി ജി പി ടി പി സെൻകുമാർ ആരോപിച്ചു ആലപ്പുഴയിൽ മഹിളാമോർച്ച സംഘടിപ്പിച്ച സെമി നാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കള്ളക്കേസെ ടുത്ത് രാഷ്ട്രീയ എതിരാളികളെയും താല്പര്യമില്ലാത്തവരെയും ദ്രോഹിക്കാൻ പാർട്ടിക്കാർ നൽകുന്ന നിർദ്ദേശപ്രകാരം പൊലീസ് സേനയെ ഉപയോഗിക്കുകയാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ സി

എമ്മിന് യാതൊരു പങ്കുമില്ലെന്നും സെൻകുമാർ അഭിപ്രായപ്പെട്ടു വോട്ടുതേടി മലയാള സർവ്വകലാശാലയിലെത്തിയ എൻ

എ സ്ഥാനാർത്ഥിയെ അപമാനിച്ച സർവ്വകലാശാല അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണമെന്ന് മഹിളാമോർച്ച ആവശ്യപ്പെട്ടു സ്ത്രീയെന്ന പരിഗണനപോലും നൽകാതെ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥിയെ അപമാനിക്കുകയായി രുന്നു വെന്ന് മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറി ഒ

ശാലിന തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സംഭവത്തിൽ തിരൂർ പൊലീസ് തെളിവെടുപ്പ് തുടങ്ങിയിട്ടു ണ്ട് സംഭവം അന്വേഷിക്കാൻ സർവ്വകലാശാല അന്വേഷണ കമ്മീ ഷനെയും നിയോഗിച്ചു ഒളിക്യാമറാ വിവാദവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വൃക്തി ഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന വർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർഥി പൊലീസിൽ പരാതി നല്കി ഒരു ദൃശ്യമാധ്യമം നല്കിയ വാർത്തക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനിരിക്കെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തും പേര് ചേർത്തും ചിലർ വ്യക്തിഹത്യക്ക് ശ്രമിക്കുന്നതായി പരാതിയിൽ ആരോപിച്ചു ചില സോഷ്യൽമീഡിയാ അക്കൌണ്ടുകളുടെ സ്ക്രീൻ ഷോട്ടും ഹാജരാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ ജില്ലയിൽ ഉപയോഗി ക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റ് യൂണിറ്റുകളും വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചു മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് യന്ത്രങ്ങൾ കൈമാറിയത്

സംസ്ഥാനത്ത് വയനാട് ഒഴികെ ജില്ലകളിൽ ഇന്നും നാളെയും താപനില മൂന്ന് ഡിഗ്രി വരെ ഉയരാൻ സാധ്യത്യുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ദുരന്ത് നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു

പത്തനംതിട്ടയിൽ ഇന്നലെ രണ്ടുപേർക്കുകൂടി സൂര്യാതപമേ റ്റു തിരുവല്ലയിലും നെടുമ്പുറത്തുമാണ് ഓരോരുത്തർക്ക് പരിക്കേ റ്റത്

കടുത്ത ചൂടിന് ആശ്വാസമായി കോട്ടയം നഗരത്തിലും പരി സരത്തും ഇന്നലെ വൈകിട്ട് മഴ പെയ്തു

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനും മുംബൈ ഇന്ത്യൻസിനും വിജയം

ഇന്ന് വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെയും രാത്രി എട്ടിന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും കോട്ടയം ജില്ലയിലെ വൈക്കത്ത് അത്യാധുനിക ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് ഉദ്ഘാടനം ചെയ്യും നാല് ബാഡ്മിന്റൺ കോർട്ടു കളും വോളിബോൾ കോർട്ടും ഉൾപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയം വൈക്കം ബാഡ്മിന്റൺ അക്കാദമിയാണ് പണി കഴിപ്പിച്ചത് തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ മരിച്ച ഏഴുവയസ്സുകാരന്റെ മൃതദേഹം ഉടുമ്പന്നൂരിൽ ഇന്നലെ രാത്രി സംസ്കരിച്ചു ഇന്നലെ ഉച്ചയോടെ കോലഞ്ചേരിയിലെ സ്വകാരൃ മെഡിക്കൽ കോളേജിലായിരുന്നു കുട്ടിയുടെ അന്ത്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റുമോർട്ടം ചെയ്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഏഴുവയസ്സുകാരൻ മരിച്ചതോടെ കേസിലെ പ്രതി അരുൺ ആനന്ദിനെതിരെ പൊലീസ് കൊലക്കുറ്റംകൂടി ചുമത്തി നേരത്തെ വധശ്രമത്തിനായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്

ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട് ജില്ലാ കലക്ടർ സാംബശിവ റാവു നിർവ്വഹിക്കും സാർവ്വത്രിക ആരോഗ്യം എല്ലാവർക്കും എല്ലായിടത്തും എന്ന സന്ദേശത്തോടെയാണ് ഈ വർഷം ദിനാ ചരണം സംഘടിപ്പിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി കോഴി ക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ രാവിലെ സൌജന്യ മെഗാ ബ്ലഡ്ഷുഗർ ക്യാമ്പ് സംഘടിപ്പിക്കും

എ കോഴിക്കോട് ചാപ്റ്ററും കേരളാ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ആരോഗ്യരംഗത്ത് മികച്ച സേവനം നൽകിയ ഡോക്ടർമാരെ ഇന്നലെ ആദരിച്ചു ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗ്മായി പാലക്കാട്ട് ഇന്ന് വനിതാ മാരത്തൺ സംഘടിപ്പിക്കും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് കോട്ടയിൽ നിന്നാരംഭിക്കുന്ന മാരത്തൺ നഗരം ചുറ്റി രാപ്പാടിയിൽ അവസാനിക്കും

കോഴിക്കോട് ഐ ഐ

ഏഴുപേർക്ക് പി എച്ച് ഡി ബിരുദവും ചടങ്ങിൽ കൈമാറി കോഴിക്കോട് ചേമഞ്ചേരി പൂക്കാട് കലാലയത്തിന്റെ കലാ പരി ശീലന പരിപാടി കുട്ടിക്കളിയാട്ടത്തിന് തുടക്കമായി

ആലങ്കോട് ലീലാ കൃഷ്ണൻ കുട്ടിക്കളിയാട്ടം ഉദ്ഘാടനം ചെയ്യും

കടവരിക്കുന്നിനു സമീപം വനമേഖലയിൽ സാമൂഹ്യവിരുദ്ധർ തീയിട്ടെന്നാരോപിച്ച് വനംവകുപ്പ് കേസെടുത്തു പാലക്കാട് കൊല്ലങ്കോട് ബൈക്കിൽ കടത്തിയ കഞ്ചാവുമായി രണ്ട് ചെങ്ങന്നൂർ സ്വദേശികളെ എക്സൈസ് പിടികൂടി